ഹൈമ്മീഷനിലേക്ക് ഔദ്യോഗിക പ്രതിനിധിയെ അയയ്ക്കേണ്ടതില്ലെന്ന് ഇന്ത്യ

പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബീഹാർ ജനതയ്ക്ക് ആശംസകൾ നേർന്നു

സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയാക്കി രാഷ്ട്രീയപാർട്ടികൾ സജീവ പ്രചാരണരംഗത്ത്

ഒരാൺകുട്ടിയെ രക്ഷപ്പെടുത്താനുള്ള നീക്കത്തിനിടയിലാണ് ഒരു ഭീകരൻ കൊല്ലപ്പെട്ടത്

കലന്തര കണ്ടി ക്രീനി ഗ്രാമത്തിൽ സുരക്ഷാസേനയുമായുണ്ടായ ഏറ്റുമുട്ടലിൽ രണ്ട് ഭീകരരാണ് കൊല്ലപ്പെട്ടത് ഹാജിനിൽ ഉണ്ടായ ഏറ്റുമുട്ടലിൽ പാകിസ്ഥാനി വംശജനും ലഷ്കർ ഇ തോയ്ബ കമാൻഡറുമായ ഒരാൾ ഉൾപ്പെടെ രണ്ടുപേർ കൊല്ലപ്പെട്ടു

ജമ്മുകശ്മീരിൽ നിന്നുള്ള വിഘടനവാദി നേതാക്കളെ പാകിസ്ഥാൻ ക്ഷണിച്ച സാഹചരൃത്തിലാണ് തീരുമാനം ഔദ്യോഗിക പ്രതിനിധികളാരും ദേശീയ ദിനാഘോഷ ചടങ്ങുകളിൽ പങ്കെടുക്കേണ്ടതില്ലെന്ന് തീരുമാനമെടുത്തായി ഔദ്യോഗിക കേന്ദ്രങ്ങൾ വൃക്തമാക്കി

പുരോഗതിയുടെ പാതയിൽ ബീഹാർ തുടരട്ടെ എന്നും വികസനത്തിന് പുതിയ ലക്ഷൃങ്ങൾ സ്ഥാപിക്കപ്പെടെട്ടേയെന്നും പ്രധാനമന്ത്രി ഒരു ട്യീറ്റിൽ ആശംസിച്ചു

കഴിഞ്ഞ അഞ്ച് വർഷങ്ങളിൽ സുപ്രധാനമായ ഒട്ടേറെ പരിഷ്കാരങ്ങൾ ഇന്ത്യ നടത്തിയതായി ഐ എം എഫ് വൃക്തമാക്കി ഉയർന്ന വളർച്ചാനിരക്ക് തുടർന്നു കൊണ്ടുപോകുന്നതിനും ജനസംഖ്യാ അടിസ്ഥാനത്തിലുള്ള അവസരങ്ങൾ ഒരുക്കുന്നതിനും ഇന്തൃയ്ക്ക് ഇനിയും ഒട്ടേറെ മുന്നോട്ട് പോകാനുണ്ടെന്നും ഐ എം എഫ് വാഷിംഗ്ടണിൽ ഇന്നലെ രാത്രി ഐ എം എഫ് കമ്യൂണിക്കേഷൻസ് മേധാവി ജെറി റൈസ് ചോദ്യങ്ങളോട് വ്യക്തമാക്കിയതാണിത് കഴിഞ്ഞ അഞ്ച് വർഷങ്ങളിൽ ഇന്ത്യയുടെ വളർച്ച ശരാശരി ഏഴ് ശതമാനം ആയിരുന്നു ഐ എഫിന്റെ അടുത്തമാസം നടക്കുന്ന വാർഷിക എം സമ്മേളനത്തിൽ ഇന്ത്യയ്ക്ക് സമ്പദ്ഘടന സംബന്ധിച്ച വിശദാംശങ്ങൾ സർവ്വേ റിപ്പോർട്ടിലൂടെ പ്രസിദ്ധീകരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു ഐ എം എഫിന്റെ മുഖ്യ സാമ്പത്തിക ഉപദേഷ്ടാവായ ഇന്ത്യൻ അമേരിക്കൻ ഇക്കണോമിസ്റ്റ് ഗീതാ ഗോപിനാഥിന്റെ നേതൃത്വത്തിലായിരിക്കും റിപ്പോർട്ട് തയ്യാറാക്കുക

മാർ അംഗീകരിച്ചാൽ യൂറോപ്യൻ യൂണിയൻ വിടാനുളള തീയതി വൈകിപ്പിക്കാനുളള ബ്രിട്ടന്റെ അപേക്ഷയിൽ അനുമതി നൽകൂവെന്ന് യൂറോപ്യൻ കൌൺസിൽ പ്രസിഡന്റ് ഡൊണാൾഡ് ടസ്ക് ബ്രസൽസിൽ വ്യാഴാഴ്ച നടക്കുന്ന യൂറോപ്യൻ യൂണിയൻ സമ്മേളനത്തിൽ ബ്രെക്സിറ്റ് വൈകിപ്പിക്കാൻ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി തെരേസ മേയ് അനുമതി തേടുന്നതിനെക്കുറിച്ചുളള പ്രതികരണത്തിലാണ് ടസ്ക് ഇക്കാര്യം പറഞ്ഞത്

എൻ ന്റെ ലക്ഷ്യവുമായി ബന്ധപ്പെട്ട് ആരേയും പിന്തള്ളരുത് എന്നതാണ് ഇത്തവണത്തെ ജലദിന സന്ദേശം ശുദ്ധജലം എല്ലാവർക്കും ലഭ്യമാക്കാൻ രാജ്യം ഒരുമിച്ച് ശ്രമിക്കണമെന്ന് ഉപരാഷ്ട്രപതി എം

രാജ്യത്തെ ജീവനാഡികളായ നദികളെയും ജലസ്രോതസ്സുകളെയും സംരക്ഷിക്കാനും പുനരുജ്ജീവിപ്പിക്കാനും ഓരോ പൌരനും ഉത്തരവാദിത്വമുണ്ടെന്ന് അദ്ദേഹം തന്റെ ടിറ്റർ സന്ദേശത്തിൽ പറഞ്ഞു ശുദ്ധജലം മാനുഷികാവകാശമാണെന്നും ശ്രീ വെങ്കയ്യ നായിഡു ഓർമ്മിപ്പിച്ചു

പ്രമുഖ പാർട്ടികളും മുന്നണികളും സീറ്റ് വിഭജനം പൂർത്തിയാക്കി സ്ഥാനാർത്ഥിപട്ടിക പുറത്തിറക്കി വിശദാംശങ്ങളുമായി ലിൻസ

കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള നേതാക്കൾ രാഷ്ട്രീയ ചർച്ചകൾക്കായി തലസ്ഥാന നഗരിയിലെത്തിയിരുന്നു രാഷ്ട്രീയ തന്ത്രങ്ങൾ മെനഞ്ഞ് സീറ്റ് വിഭജനം സംബന്ധിച്ചു ചർച്ചകളും പൂർത്തിയാക്കി പലരും സംസ്ഥാനങ്ങളിലേക്ക് മടങ്ങി വരുംദിവസങ്ങളിൽ സംസ്ഥാന തലസ്ഥാനങ്ങൾ കേന്ദ്രീകരിച്ചായിരിക്കും കൂടുതൽ കൂടിയാലോചനകൾ ആദ്യഘട്ട പട്ടികയിൽ ഇടംനേടിയ സ്ഥാനാർത്ഥികൾ ഇതിനകംതന്നെ പ്രചാരണ രംഗത്ത് സജീവമായികഴിഞ്ഞു

പ്രധാനമന്ത്രിയും പാർട്ടി അധ്യക്ഷനും ഉൾപ്പെടെയുള്ളവർ ഒന്നാംപട്ടികയിൽ തന്നെ ഇടംപിടിച്ചു കോൺഗ്രസ്സ് ഇതിനകം ഏഴ് ഘട്ടങ്ങളിലായി സ്ഥാനാർത്ഥിപട്ടിക പുറത്തിറക്കിയിട്ടുണ്ട്

തെലങ്കാനയിൽ പ്രചരണരംഗം സജീവമാണ് തെലങ്കാന രാഷ്ട്രസമിതിയും ബി ജെ പി യും ഇതിനകം തന്നെ എല്ലാ മണ്ഡലങ്ങളിലേയും സ്ഥാനാർത്ഥിപട്ടിക പ്രഖ്യാപിച്ചിട്ടുണ്ട്

ന്യൂസ് ഡെസ്ക് ആകാശവാണി

ജെ

ഡൽഹിയിൽ നടന്ന ചടങ്ങിൽ കേന്ദ്ര മന്ത്രി അരുൺ ജെയ്റ്റ്ലി രവിശങ്കർ പ്രസാദ് എന്നിവർ സന്നിഹിതരായുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആശയങ്ങളിലും നേതൃ പാടവത്തിലും ആകൃഷ്ടനായാണ് താൻ ബി ജെ പിയിൽ ചേർന്നതെന്ന് ഗൌതം ഗംഭീർ മാധ്യമ പ്രവർത്തകരോട് പറഞ്ഞു

ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒറ്റയ്ക്ക് മത്സരിക്കാൻ തെലുഗ്ദേശം പാർട്ടി ഇതിനകം തന്നെ തീരുമാനിച്ചിരുന്നു അതിനിടെ അരഗ് പാർലമെന്റ് മണ്ഡലത്തിൽ നിന്ന് വി കിഷോർചന്ദ്ര ദേവ് തെലുങ്ക് ദേശം പാർട്ടിയ്ക്കുവേണ്ടി ജനവിധി തേടുമ്പോൾ മകൾ കോൺഗ്രസ്സിനുവേണ്ടി അതേ മണ്ഡലത്തിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു

എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇസ്രയേലിന് ഗോലൻ കുന്നുകളുടെ മേൽ നയപരമായ പ്രധാന്യം ഉളളതായി ഇന്നലെ ഡൊണാൾഡ് ട്രംപ് ട്വീറ്റ് ചെയ്തു അമേരിക്കൻ പ്രസിഡന്റിന്റെ പ്രഖ്യാപനത്തെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നതായി ഇസ്രയേൽ പ്രധാനമന്ത്രി ബഞ്ചമിൻ നെതന്യാഹു പറഞ്ഞു

മരിച്ചവരിൽ അധികവും സ്ത്രീകളും കുട്ടികളുമാണ് അനുവദനീയമായതിലും അധികം ആളുകൾ ബോട്ടിൽ കയറിയതാണ് ദുരന്തത്തിന് കാരണമായത് ഭീകരവാദികളിൽ നിന്ന് വടക്കൻ നഗരം തിരിച്ചു പിടിച്ചതിനു ശേഷം ആദ്യമായി കുർദ്ദുകളുടെ പുതുവർഷ ആഘോഷം നടത്തുന്നതിന്റെ സന്തോഷത്തിലായിരുന്നു നാട്ടുകാർ

ഇന്നലെയാണ് ജിയാങ്ഷു പ്രവിശ്യയിലെ രാസവള ഫാക്ടറിയിൽ തീപിടുത്തെ തുടർന്ന് സ്ഫോടനമുണ്ടായത്